ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും ചടങ്ങിൽ അനുസ്മരണ നാണയം അദ്ദേഹം പുറത്തിറക്കും

കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരണമടയുന്നവരുടെ മൃതദേഹം കൈകാരൃം ചെയ്യുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി ആരോഗൃമന്ത്രി കെ

രാജ്യസഭാംഗമായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി

എസ് എൽ

പരിപാടിയിൽ ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും പ്രത്യേക കവറും അദ്ദേഹം പ്രകാശനം ചെയ്യും രാജൃരക്ഷാ മന്ത്രി ഉത്തർപ്രദേശ് ഗവർണർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും

നാലു ലക്ഷത്തി നാല്പത്തി നാലായിരത്തോളം പേർ നിലവിൽ ചികിത്സയിലുണ്ട്

പുതുക്കിയ മാർഗനിർദേശങ്ങളനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സ്ഥലത്തുവച്ചും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃതദേഹം കാണാവുന്നതാണ്

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

നിയമനിർമ്മാണ കാര്യനിർവ്വഹണ നീതിന്യായ വൃവസ്ഥകളുടെ സന്തുലിത ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിലേക്കുള്ള സഹകരണം താക്കോൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം

ഒരു സ്വതന്ത്ര എംഎൽഎയും എൻ ഡി

വിവേകശാലിയും നയതന്ത്ര വിദഗ്ധനുമായിരുന്ന ഒരു ജനകീയനായ നേതാവായിരുന്നു അഹ്മദ് പട്ടേലെന്ന് രാഷ്ടപതി ടിറ്ററിൽ കുറിച്ചു

കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഹ്മദ് പട്ടേൽ വഹിച്ച പങ്ക് എല്ലായിപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കിരൺ വോയ്സ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ ്യൂപസായ വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിതല സമിതിയാണ് പദ്ധതികൾക്ക് അംഗീകാർം നൽകിയത് കാർഷിക സംസ്കരണ കേന്ദ്രങ്ങൾക്കായി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികളാണ് സമിതി അംഗീകരിച്ചത്

ആധുനിക സൌകര്യങ്ങൾ ഉൾപ്പെടുത്തി സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്

വിവിധ കോണുകളിൽ നിന്ന് ആശങ്ക ഉയർന്നതിനെ തുടർന്നാണ്ട് ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി പ്പിജയൻ പറഞ്ഞു

ബംഗ്ലാദേശ് ശില്പകല അക്കാദമിയുമായി ചേർന്ന് ഇന്ത്യൻ ഹൈ കമ്മീഷനിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ ആണ് പരിപാടി സംഘടിപ്പിച്ചത്